നിരോധിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി പ്രകൃതി സൌഹൃദ പടക്കങ്ങളുടെ നിർമ്മാണത്തിന് കോടതിയുടെ അനുമതി

ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് വിലയിരുത്തി

ഇന്ത്യൻ വിസക്ക് അപേക്ഷിക്കുന്ന വിദേശ പൌരന്മാർ ഇനി മുതൽ തങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ വിവരം കൂടി അപേക്ഷയിൽ ചേർക്കണം

ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻൺ ടൂർണമെന്റിന് പാരീസിൽ ഇന്ന് തുടക്കം

ദീപാവലി ഉത്സവ കാലത്ത് പടക്കം പൊട്ടിക്കാനുള്ള സമയപരിധി രാത്രി എട്ട് മുതൽ പത്തുവരെ കോടതി നിജപ്പെടുത്തി ഓൺലൈൻ മുഖേന അനുവദനീയമായ അളവിലധികം പടക്കം വിപണനം നടത്തുന്നതും പരമോന്നത കോടതി വിലക്കി

ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിൽ സംയുക്ത ആഘോഷ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി

വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പാക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് ഭീകരർക്ക് പിൻതുണയും സുരക്ഷിത താവളവും നൽകുന്നതിൽ ഇന്തൃ ശക്തിയായി അപലപിക്കുന്നതായി വിദേശകാരൃ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു് ജമ്മു കാശ്മീരിലെ സുന്ദർ ബാനി മേഖയിലായിരുന്നു സ്ക്ട്രിവും പാക് നുഴഞ്ഞ കയറ്റം ചെറുക്കുന്നതിനിടെ മൂന്ന് സൈന്റിക്കുാണ് വീരമൃത്യു വരിച്ചത് രണ്ട് നുഴഞ്ഞുകയറ്റക്കാർ ക്കൊല്ലപ്പെട്ടു നുഴഞ്ഞുകയറ്റക്കാർ കൊല്ലപ്പെട്ട വിവരം പാക്യിസ്ക്കാന അറിയിച്ചിട്ടുണ്ട്

ഏറ്റുമുട്ടൽ മേഖലകളിൽ നിന്ന് മാറി നിൽക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു

നേരത്തെ ശ്രീനഗറിൽ സംസ്ഥാനത്തെ പൊതുവായ സ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്തു

കുട്ടികൾക്കെതിരായ പീഡനവും മറ്റ് അക്രമങ്ങളും തടയുകയാണ് ലക്ഷ്യം വിസ അപേക്ഷാപ്പ് മൂറം ഇതനുസരിച്ച് പരിഷ്ക്കരിക്കണമെന്ന നിർദ്ദേശം അ് ്ട്രീക്രിക്കപ്പെട്ടതായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി മിനേക്ക് ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു വിസ അപേക്ഷയിൽ പ്രത്യേകി ചോദ്യാവലിയും സത്യവാങ്മൂലവും ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു

മഹാരാഷ്ട്രയിലെ പൂനൈയിൽ സിംബയോസിസ് സർവകലാശാലയുടെ പതിനഞ്ചാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം അഭ്യസ്തവിദ്യർ സമൂഹ പുരോഗതിക്കായി പ്രയത്നിക്കണമെന്ന് സഹപാഠികളോടും സമൂഹത്തോടും അനുഭാവ പൂർണ്ണമായി പെരുമാറണമെന്നും വിദ്യാർത്ഥികളോട് രാഷ്ട്രപതി നിർദ്ദേശിച്ചു

തക്ഷശില നളന്ദ സർവകലാശാലയുടെ കാലം മുതൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം വിദേശ ശ്രദ്ധ ആകർഷിക്കുകയാണ് രാജ്യത്ത് ധാരാളം സർവകലാശാലകൾ ഉണ്ടെങ്കിലും ഗുണമേന്മയിൽ പലതും പിന്നിലാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു വിദ്യാഭ്യാസരംഗത്ത് അന്താരാഷ്ട്രനിലവാരം കൈവരിക്കാൻ ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്

റാംനാഥ് കോവിന്ദ് പറഞ്ഞു രാഷ്ട്രപതിയുടെ പീത്തി സവിതാ കോവിന്ദ് ഗവർണർ വിദ്യാസാഗർ റാവു സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു

ജെ

സംസ്ഥാനത്തിന്റെ പുരോഗതി തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമാകുമെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ പറഞ്ഞു ഈ വിഷയം കോൺഗ്രസ് വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ഹർഷ് വർദ്ധൻ ലക്ഷദ്വീപിലെ കവരത്തിയിൽ തറക്കല്പിട്ടു പരിസ്ഥിതിസൌഹൃദ സ്വയം പര്യാപ്ത സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണിത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചാണ് കേസ് പരിഗണിച്ചത്

ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുളള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സൂപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുവ രുന്നവർക്ക് പോലീസ് സംരംക്ഷണം നൽകാതിരിക്കാൻ ഗവൺമെന്റിന് കഴിയില്ല

മറ്റൊരാൾക്കും അതിൽ അവകാശമില്ല ഇത് എല്ലാ വരും ഉൾക്കൊളളണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

സ്ത്രീതൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി ജോലിക്കിടയിൽ ഇരിക്കാൻ അവകാശം നൽകുന്നതാണ് ഉത്തരവ് ഗവൂൺമെന്റിന്റെ തൊഴിലാളിക്ഷേമനടപടികളിലെ സുപ്പുള്ളാൽ നാഴികക്കല്ലായാണ് ഈ നിയമഭേദഗതികൾ നിലവിൽ ക്വിന്നീരിക്കുന്നതെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു നിയ്മിട്ടേദ്ദഗതികൾ ഉടൻ നടപ്പാക്കുന്നതിന് തൊഴിലുട്ട്മുകൂളോടും ഇതനുസരിച്ചുള്ള അവകാശങ്ങൾ ഉറപ്പുഷ്പമുത്തുന്നതിന് തൊഴിലാളികളോടും മന്ത്രി അഭ്യർഥിച്ചു

ഇന്ത്യയുടെ കിഡമ്പി ശ്രീകാന്ത് പി

പുരുഷ ഡബിൾസിൽ എം

ശ്രീകാന്ത് സൈനാ സായ് പ്രമീത് സമീർ വർമ്മ എന്നിവരുടെ മത്സരം നാളെയാണ്

സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ശില്പശാല മന്ത്രി മാത്യു ടി

നദികളുടെ വീണ്ടെടുപ്പിലൂടെ പാരിസ്ഥിതിക പുനസ്ഥാപനത്തിനായി പ്രവർത്തിച്ചവരും ശ്രദ്ധേയമായ ജനകീയ ഇടപെടലുകൾ നടത്തിയവരും ശിൽപശാലയിൽ പങ്കെടുക്കും

ലോകാരോഗ്യസംഘടന്ത്യുടെ സഹകരണത്തോടെ ആരോഗ്യം മൃഗസംരക്ഷണം ഫിഷറീസ് കൃഷി പരിസ്ഥിതി എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് കർമ്മ പദ്ധതി യാഥാർത്ഥ്യമാക്കു ന്നത് പദ്ധതിയുടെ പ്രകാശനത്തോടെ ഇന്ത്യയിലെ എ എം ആർ കർമ്മ പദ്ധതിയുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറും